കൊറോണ വ്യാപനത്തെ തു്ടർന്ന് സുപ്രീംകോടതി യുടെ പ്രവർത്തനങ്ങളീൽ നിയന്ത്രണം ഏർപ്പെടുത്തി

ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു

രാഷ്ട്രീയ ജാഥകളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉണ്ടാകുന്ന നഷ്ടം തിരിച്ചുപിടിക്കാൻ ഓർഡിനൻസുമായി ഉത്തർപ്രദേശ് സർക്കാർ

ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ കൂടി ഉപേക്ഷിച്ചു

രാജ്യത്ത് ഇവയുടെ വിതരണം ഉറപ്പാക്കുന്നതിനും പൂഴ്ത്തി വയ്പ് ഒഴിവാക്കുന്നതും ലക്ഷ്യമിട്ടാണ് ഈ നടപടി

ഇതോടെ ഇവയും ഉല്പാദനം വിതരണം വിലനിർണയം എന്നിവ നിയന്ത്രിക്കാനും പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും പ്രതിരോധിക്കാനും സംസ്ഥാനങ്ങൾക്ക് അധികാരം ലഭിക്കും

പുതുതായി അഞ്ച് കേസുകൾ കൂട്ടി റിപ്പോർട്ട് ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി പ്ലിപ്പിത് വിജയൻ

കേരളം കർണാടക ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യമന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു

ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാൻ എയർ ഇന്ത്യയുടെ വിമാനം ഇന്ന് പുറപ്പെടുമെന്ന് സിവിൽ വ്യോമയാന ജോയിന്റ് സെക്രട്ടറി റൂബിന അലി അറിയിച്ചു

കോടതി മുറികളിൽ ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ കൊറോണയുടെ പർച്ചാത്തലത്തിൽ ആളുകൾ കൂട്ടം ചേരുന്നത് പരമാവധി ഒഴിവാക്കുണ്ട്മെന്ന് കേന്ദ്രസർക്കാർ ഈ മാസം അഞ്ചിന് നിർദ്ദേശിച്ചിരുന്നു

കെയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ വ്യക്തിക്കും വർക്കലയിൽ റിസോർട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന ഇറ്റലി സ്വദേശിക്കുമാണ് ഇന്നലെ വൈകിട്ട് രോഗം സ്ഥിരീകരിച്ചത്

രോഗബാധ തടയുന്നതിൽ ്ട്കൂടുത്ൽ ജാഗ്രത കാണിക്കണമെന്ന് ഇന്നലെ വൈകിട്ട് സംസ്കാന്ത്ത രോഗവ്യാപനത്തിന്റെ സ്ഥിതി വെളിപ്പെടുത്തികൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ടൂറിസം മേഖലയിലെ ഹ്മോംസ്റ്റേകൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ എന്നിവിടങ്ങളിൽ കോവിഡ് ബാധിതരാജ്യങ്ങളിൽ നിന്നെത്തുന്ന സന്ദർശകരെ കണ്ടെത്തി പരിശോധിച്ച് രോഗം ഇല്ലെന്ന് ഉറപ്പാക്കുന്നുണ്ട് ഇറ്റലിയിൽ കൂടുങ്ങിയ വിദ്യാർഥികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്രം പ്രത്യേകം വിമാനം അയക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമാണ്

കണ്ണൂർ വിയ്യൂർ തിരുവനന്തപുരം സെൻട്രൽ പ്രിസണുകളിൽ അടിയന്തിര നിർമ്മാണം ആരംഭിക്കും

എയർ ഇറാൻ വിമാനത്തിൽ മുബൈ വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യാക്കാരെ നാവികസേന സംഘം നേരിട്ട് എത്തിയാണ് ക്യാമ്പിലേക്ക് ക്ടൊണ്ടുപോയത് ഇവരെ രണ്ട് ആഴ്ച നിരീക്ഷണത്തിൽ വയ്ക്കും

രാജ്യത്ത് പ്രതിരോധ പ്രവീർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ അയ്യായിരം കോടി ഡോളർ ധനസഹായം അനുവദിക്കുമെന്ന് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പറഞ്ഞു രോഗ വ്യാപനം തടയാൻ ആവശ്യമായ മുൻ കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു രാജൃത്ത് എല്ലായിടങ്ങളിലും അടിയന്തര പരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും

ബി

വിജ്ഞാപനം ഇറങ്ങി മൂന്ന് ദിവസത്തിനകം ബാങ്കിൽ നിന്നുള്ള പണം കൈമാറ്റത്തിനുള്ള മൊറട്ടോറിയം നീക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ പുതിയ ബോർഡ് ചുമതലയേൽക്കും

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ധ്യക്ഷനായ മന്ത്രിസഭാ യോഗമാണ് തീരുമാനം പ്എടുത്തത്

എ വിരുദ്ധ പ്രതിഷേധങ്ങളിൽപ്പ് കുറ്റക്കാരായവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പോസ്സ്റ്റുക്കളും മറ്റും നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് യു് പി സർക്കാരിന്റെ തീരുമാനം

പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു

മൂന്ന് ഗെയിമുകൾ നീണ്ട ആവേശകരമായ മത്സരത്തിനൊടുവിലാണ് സിന്ധു തോൽവി സമ്മതിച്ചത്

ഐ അറിയിച്ചു

ധനബിൽ പാസാക്കിയില്ലെങ്കിലും അത് അവതരിപ്പിച്ചതിനാൽ ബജറ്റിലെ പുതിയ നികുതി നിർദ്ദേശങ്ങളും ഫീസുകളും ഏപ്രിൽ ഒന്നുമുതൽ ഈടാക്കിത്തുടങ്ങും

കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സഭ നേരത്തേ പിരിഞ്ഞെങ്കിലും ധനവിനിയോഗ ബിൽ പാസാക്കി